പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ചത്തേയ്ക്ക് കൂടി കർശന നിയന്ത്രണങ്ങൾ

ലോക്ഡൌൺ നീട്ടുന്ന സാഹച്ചര്യ്ത്തിൽ സാധാരണക്കാരുടെ ഉപജീവനം ഉറപ്പുവരുത്തണമെന്നു് ്ധന്നമന്ത്രി തോമസ് ഐസക്

സംസ്ഥാനത്ത് നിയന്ത്ര്ണങ്ങൾ തുടരും പൂർണ്ണമായി രോഗവിമുക്തമായെന്ന് പ്രൂപ്പറയാറായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ

മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു

ജനങ്ങളുടെ ത്യാഗത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി രാജ്യം കാട്ടിയ അച്ചടക്കം ലോകത്തിന് മാതൃകയാണെന്നും പറഞ്ഞു തീവ്ര ബാധിത പ്രദേശങ്ങളുടെ എണ്ണം കൂടാൻ അനുവദിച്ചുകൂടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജാഗ്രത കൈവെടിയരുതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനങ്ങൾ പാലിക്കേണ്ട ഏഴ് മാർഗ്ഗ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു

മുതിർന്ന പൌരന്മാരെ സഹായിക്കുക

ലോകഡൌൺ നിയമങ്ങൾ കർശനമായി പാലിക്കുക

വീട്ടിൽ നിർമ്മിച്ച മാസ്ക് ഉപയോഗം വ്യാപകമാക്കുകയും രോഗപ്രതിരോധം ശക്തമാക്കുകയും ചെയ്യുക

ആരോഗ്യ സേതു ആപ്പ് ഡൌൺലോഡ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്

ഇപ്പോൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ജില്ലകളിൽ പോലും നിയന്ത്രണങ്ങൾ ് തുടരേണ്ടതുണ്ട് ആഴ്ച്ചകളായി സ്വന്തം വീടുകളിൽ പോലും പോകാൻ സാധിക്കാതെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗൃ പ്രവർത്തകരെ വിഷു ദിനത്തിൽ സംസ്ഥാന കൺട്രോൾ റൂമിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള തീരുമാനങ്ങൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു

പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതരത്തിലുള്ള വൃക്തമായ തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുു് ഉണ്ടാകണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മൂന്നു പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു

വിദേശത്ത് നിന്ന് വന്ന ഒരാൾക്കും സമ്പർക്കത്തിലൂടെ രണ്ടു പേർക്കുമാണ് രോഗം ബാധിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പുതിയതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവും സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണത്തിലെ വർധനയും കണ്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കാം എന്ന ധാരണ രൂപപ്പെട്ടത് അപകടകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വാഹന പരിശോധന ലോക്ക് ഡൌൺ ലംഘനത്തിന് പിടിച്ചെടുത്തശേഷം വിട്ടുനൽകിയ വാഹനങ്ങൾ അതേ കുറ്റത്തിന് വീണ്ടും പിടിയിലാകുകയാണെങ്കിൽ ശിക്ഷയും പിഴയും കഠിനമായിരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടുനൽകിയ ഇത്തരം വാഹനങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചു ചിലർ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽ പെട്ടതിനെത്തുടർന്നാണ് മുന്നറിയിപ്പ്

ജയചന്ദ്രൻ

ഇടുക്കി ഇൻട്രോ ഇടുക്കി ജില്ല കോവിഡ് മുക്തമായെങ്കിലും അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നവർ മാസ്കോ ത്രൂപ്പാലയോ ധരിക്കണമെന്ന് നിർദേശിച്ചു

നേരത്തെ പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുറമേയാണിത് ഇവിടെ ആരും പുറത്തിറങ്ങരുതെന്നും കലക്ടർ അറിയിച്ചു

രോഗപരിശോധനയ്ക്കായുള്ള സൌകരൃങ്ങൾ ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും വിപുലമാക്കാൻ ഐസിഎംആർ നടപടികൾ സ്വീകരിച്ചു വരുന്നു

കേന്ദ്ര പാക്കേജ് സമൂഹത്തിലെ ദുർബല വിഭാഗിങ്ങൾക്ക് അവശ്യവസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും കോവിഡിറ്റ് തുടർന്ന് പ്രഖ്യാപിച്ച ലോക് ഡൌൺ മൂലം അവർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനുമായി ക്ട്രീയ്യ സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെട് ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് വലിയതോതിൽ ലഭിച്ചു ്വ്രിക്യാണ് കൂടുതൽ വിവരങ്ങളുമായി രജ്ഞിത്

് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായ സാഹചരൃത്തിലാണ് വിശദീകരണം മാസ്ക് ധരിക്കുക കൈകൾ കഴുകുക തുടങ്ങിയ മാർഗ്ഗങ്ങളും സാമൂഹിക അകലം പാലിക്കലുമാണ് രോഗ പ്രതിരോധത്തിനുള്ള മാർഗ്ഗം വ്യാജ വാർത്തകൾ തിരിച്ചറിയുന്നതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഏർപ്പെടുത്തിയ ജകആ ളമരരേവലരസ സംവിധാനം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്

ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നിർണ്ണായകമായ സ്വാധീനം ചെലുത്താൻ ഡോ

വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പുലർച്ചെ വീടുകളിൽ വിഷുക്കണി ഒരുക്കി ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഈ വർഷം വിഷു ആഘോഷം വീടുകളിൽ മാത്രമായി ഒതുങ്ങും

അയ്യപ്പനെ കണി കാണിക്കുന്ന വിശേഷാൽ ചടങ്ങും ഇന്നു പുലർച്ചെ സന്നിധാനത്തു നടന്നു

യുഎഇ കോവിഡ് പശ്ചാത്തലത്തിൽ കാലാവധി തീർന്ന സന്ദർശന വിസകളുടെയും സ്ഥിരം വിസകളുടെയും കാലപരിധി ഈ വർഷം അവസാനം വരെ നീട്ടി നൽകാൻ യുഎഇ തീരുമാനിച്ചു ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ തീരുമാനം